ഇ കൾക്കും കർഷകർക്കും സഹായകമാകുന്ന നടപടികൾക്ക് അനുമതി നൽകി രണ്ടാം എൻഡിഎ സർക്കാരിന്റെ രണ്ടാം വർഷത്തെ ആദ്യ മന്ത്രിസഭായോഗം യോഗ തീരുമാനങ്ങൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു

ഡൽഹിയിൽ നിലവിൽ പതിനായിരത്തിൽ അധികം പേർ ചികിത്സയിലുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ജയലക്ഷ്മി

ഇന്ത്യ പോലുള്ള രാജ്യത്ത് ചികിത്സാ സൌകര്യങ്ങളും ആരോഗ്യ സംരക്ഷണ മേഖലയിലെ അടിസ്ഥാന സംവിധാനങ്ങളും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ആധുനികവൽക്കരണവും ഏറെ പ്രാധാന്യമർഹിക്കുന്നവയാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഓരോ ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജോ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത വിദ്യാഭ്യാസ ആരംഭിക്കുന്നതിന് സ്ഥാപനമോ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൊറോണ പ്രതിരോധത്തിന് ഇന്ത്യയിലെ ഡോക്ടർമാരുടെയും ആരോഗ്യപ്രവർത്തകരുടെയും സേവനം നിരവധി രാജ്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യപ്രവർത്തകരുടെ ആത്മാർത്ഥമായ സേവനത്തിലൂടെ കോവിഡ് മഹാമാരിയെ തോൽപ്പിക്കാൻ നമുക്ക് ആകും ആരോഗ്യരംഗത്ത് ലോകം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും ഇതിനെ നാം മറികടക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജൂൺ എട്ട് മുതൽ ആരാധനാലയങ്ങൾ ഹ്ഗോട്ടൽ റസ്റ്റോറന്റ് ഷോപ്പിംഗ് മാളുകൾ എന്നിവ തുറക്കും കർഫ്യൂ രാത്രി ഒൻപത് മുതൽ രാവിലെ അഞ്ചു വരെ മാത്രം സംസ്ഥാനങ്ങൾക്കുള്ളിലും അന്തർ സംസ്ഥാന യാത്രകളും അനുവദിച്ചിട്ടുണ്ട് അതേസമയം രാജ്യാന്തര വിമാനസർവ്വീസ് തീയേറ്ററുകൾ പൊതുസമ്മേളനങ്ങൾ എന്നിവയ്ക്കുള്ള നിരോധനങ്ങൾ ഈ ഘട്ടത്തിലും തുടരും

ഇതിൽ ഒരാൾ എയർ ഇന്ത്യ സ്റ്റാഫും ഒരാൾ ആരോഗ്യ പ്രവർത്തകനുമാണ്

സി

സി

എയിൽ നിന്നാണ് ദുബായ് അബുദാബി ബഹ്റിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ കൊച്ചി അന്താരാഷ്ട്രവിമാനത്താവളത്തിൽ എത്തും മസ്ക്കറ്റ് ദുബായ് അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് കണ്ണൂരിലെത്തുന്നത് തിരുവനന്തപുരത്ത് ദുബായിൽ നിന്നും കുവൈറ്റിൽ നിന്നും വിമാനങ്ങൾ എത്തും

രാജ്യത്തെ എല്ലാ എംഎസ്എംഇകൾക്കും പരാതികൾ പരിഹരിക്കാനുള്ള വേദിയാണ് ചാമ്പ്യൻസ്